നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് പ്രചാരണയോഗത്തിൽ പങ്കെടുത്തു കോൺഗ്രസ് നേതാവ് പ്രിയങ്കഗാന്ധി വിവിധ ജില്ലകളിൽ പ്രചാരണം നടത്തി

ജില്ലയിൽ തെരഞ്ഞെടുപ്പ് യ്യോഗിങ്ങളിൽ പങ്കെടുത്തു

കേസിൽ കോടതി നാളെ വിധി പറയും

തെരഞ്ഞെടുപ്പ് ദിവസം വേതനത്തോടുകൂടി അവധി നൽകാൻ ലേബർ കമ്മീഷണർ ഉത്തരവായി

മുതൽ കോവിഡ് വാക്സിൻ നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് പൂർത്തിയായി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് എൻഡിഎ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു കേരളത്തിന്റെ വികസനപാതയിൽ മാറി മാറി വന്ന എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ നിരവധി തടസ്സങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അതിവേഗ വികസനമാണ് ബി ജെ പി കേരളത്തിനായി വാഗ്ദാനം ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിലെ രാഷ്ട്രീയ രംഗം വൻതോതിലുള്ള മാറ്റങ്ങളിലൂടെ യാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കടന്നു പോകുന്നത്

ഇരു മുന്നണികളും കേരളത്തിലെ സംസ്കാരത്തെയും ആചാരങ്ങളെയും അപമാനിച്ചതായും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി പാലക്കാട്ടു നിന്നും അദ്ദേഹം തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് പ്രചാരണത്തിനായി മടങ്ങി അടുത്ത മാസ്പും രണ്ടിന് സംസ്ഥാനത്ത് വീണ്ടും എത്തുന്ന പ്രധാനമന്ത്രി കോന്നിയിലും തിരുവനന്തപുരത്തും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസ്പാരിക്കും

അഴിമതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറയുന്നതായി പ്രിയങ്കാ ഗാന്ധി കുറ്റപ്പെടുത്തി

വെഞ്ഞാറമൂട് കാട്ടാക്കട എന്നിവിടങ്ങളിലെ പ്രചാരണ പരിപാടികളിലും പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്തു

എഫ് അനുകൂല ജനവികാരമാണുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുമുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലമാകുന്നുവെന്നും അദ്ദേഹം കാസർഗോഡ് പറഞ്ഞു കേരളത്തിന്റെ വികസനകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ഭയപ്പെടുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിട്ടില്ലെന്ന കേന്ദ്ര മന്ത്രി പിയൂഷ് ഗോയലിന്റെ പ്രസ്താവനയെയും മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രചാരണ പരിപാടികളിൽ മുഖൃമന്ത്രി പങ്കെടുത്തു

നിഷ്പക്ഷമായി തെരഞ്ഞെട്ടുപ്പ് നടത്തുമെന്നും വോട്ടർ പട്ടികയിൽ ഇനി മാറ്റം സാധ്യമ്ല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു ഹർജിയിൽ കോടതി നാളെ വിധി പറയും ഇരട്ടവോട്ട് സംബന്ധിച്ച് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തലയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്

കേരളാ ഷോപ്സ് ആന്റ് കോമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ് മെന്റ് ആക്റ്റിന്റെ പരിധിയിൽ വരുന്ന പൊതു സ്വകാരൃ വാണിജ്യ വൃവസായ വ്യാപാര സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകം അവധി അനുവദിക്കുന്നതുവഴി തൊഴിലാളികളുടെ വേതനത്തിൽ കുറവ് വരുത്തുകയോ വേതനം നൽകാതിരിക്കുകയോ ചെയ്യുന്നത് ശിക്ഷാർഹമാണ്

പ്രധാനമന്ത്രി അനുമതി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാന സർക്കാർ മനപൂർവ്വം അനുമതി നിഷേധിച്ചതായി ബി ജെ

സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ്ജ് കുര്യൻ കോന്നിയിൽ ഹെലിപ്പാഡ് നിർമ്മിക്കാൻ പാർട്ടി പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് ചോദിച്ച ഗ്രൌണ്ടുകളിലൊന്നും അനുമതി അനൽകിയില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കോന്നി ഇൻഡോർ സ്റ്റേഡിയത്തിലും കാര്യവട്ടം ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിലുമാണ് പ്രധാനമന്ത്രി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുക

തെരഞ്ഞെടുപ്പ് പ്രിക്ടിയ തുടങ്ങിക്കഴിഞ്ഞുള്ള സർവേകൾ അധാർമ്മികമാണെന്നും അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാട്ടി അഭിപ്രായ സർവ്വേകളിൽ കാണുന്നതിനെക്കാൾ മികച്ച പ്രകടനം എൻ

എ കാഴ്ച്വയ്ക്കുമെന്ന് ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ

എൽഡിഎഫിന് മുൻതൂക്കം നൽകുന്ന പ്രപ്പ്രീ പോൾ സർവേ ഫലങ്ങൾ വിവിധ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ട സാഹചര്യത്തിലാണ് പ്രതികരണം ജോയ്സ് ജോർജ് രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് ഇടുക്കി മുൻ എം പി ജോയ്സ് ജോർജ് പ്രസ്താവന പരസ്യമായി പിൻവലിച്ച് മാപ്പ് പറയുന്നതായി ജോയ്സ് ജോർജ് അറിയിച്ചു

ഡി

എന്നാൽ രാഹുൽ ഗാന്ധിയെ വൃക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഇടതുമുന്നണി നയമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു പരമാർശത്തോട് വിയോജിക്കുന്നതായി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയേറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു തപാൽ ബാലറ്റ് ക്രമക്കേട് ബാലറ്റിലെ ക്രമക്കേടുകളിൽ അടിയന്തരമായി തപാൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്തുനൽകി ബാലറ്റ് വിതരണത്തിലും വോട്ട് രേഖപ്പെടുത്തിയ ബാലറ്റ് തിരിച്ചു വാങ്ങി എആർഒയുടെ വശം എത്തിക്കുന്നതിലും ഗുരുതരമായ ക്രമക്കേട് നടക്കുന്നു ബാലറ്റിനായി അപേക്ഷ നൽകിയ നിരവധി പേർക്ക് ബാലറ്റ് ലഭിച്ചിട്ടില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്

കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത് ജില്ലകളിലൂടെ

ഡി എഫ് പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി

ഇന്നലെ വൈകീട്ട് നാലരയോടെയാണ് സംഭവം

മുഖ്യമന്ത്രി ഈ സംഭവത്തിൽ കഴമ്പില്ലെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ന്യൂനപക്ഷ വിരുദ്ധ സമീപനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൊച്ചി ബൂത്ത് പോളിംഗ് ബൂത്തുകളിൽ കൂട്ടം കൂടലും സൌഹൃദ സംഭാഷണവും വേണ്ടെന്ന് എറണാകുളം ജില്ലാ ഭരണകൂടം കർശന നിർദ്ദേശം നൽകി വോട്ട് ചെയ്തതിനു ശേഷം കൂട്ടം കൂടി നിൽക്കാതെ നേരെ വീട്ടിലേക്കു പോകണം വീട്ടിലെത്തിയാൽ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കഴുകി കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ വീട്ടുകാരുമായി ഇടപഴകാവൂ അടിസ്ഥാനമായി പാലിക്കേണ്ട കോവിഡ് മാർഗ നിർദ്ദേശങ്ങൾ അടങ്ങിയ പോസ്റ്ററുകൾ ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലും പതിക്കാനും തീരുമാനമായി

മൂന്നു പരിപാടിയും ജില്ലാ കളക്ടർ ഉദ്ദ്ഘാടനം ചെയ്യും

തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ നിലപാട് അറിയിക്കാമെന്നും കമ്മീഷൻ കോടതിയിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് നിയമസഭയുടെ കാലാവധി കഴിയും മുമ്പ് നടത്തുമെന്ന മുൻനിലപാട് രേഖപ്പെടുത്തേണ്ടതില്ല എന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു

ഒരു പുതിയ ഹോട്ട് സ്പോട്ടാണ് ഇന്ന് സംസ്ഥാനത്ത് ഉള്ളത്

ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയ വിജയകരമായിരുന്നുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു ദേഹാസ്വാസ്ഥത്തെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ എത്തിയ രാഷ്ട്രപതിയെ എയിംസിലേക്ക് മാറ്റുകയായിരുന്നു

തേക്കടി ്പെരിയാർ ഹൌസിലെ ക്ലോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സിറ്റിംഗിൽ വേതന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ക്ലെയിം ഉള്ളവർക്ക് തെളിവുകൾ സഹിതം ഫയൽ ചെയ്യാം

അദ്ദേഹത്തിന്റെ ജന്മനാടായ കൊട്ടാരക്കരയിലെ കുളക്കടയിലാണ് സംസ്കാരച്ചടങ്ങുകൾ നടക്കുക

ഐ

കേസിൽ അഞ്ചുപേരാണ് മാപ്പുസാക്ഷികൾ

സനാതൻ എന്ന നോവലിനാണ് പുരസ്കാരം

ആകാശവാണി സോളാപ്പൂർ നിലയത്തിലെ മുൻ അനൌൺസർ കൂടിയാണ് ശരൺകുമാർ ലിംബാലെ ഓഹരി സ്വർണ്ണം രാജ്യത്തെ ഓഹരി വിപണികളിൽ ്നേട്ടം

സ്വർണ്ണ വിലയിൽ ഇടിവ്

മത്സ്യത്തൊഴിലാളി ജാഗ്രത തെക്ക് കിഴക്ക് അറബിക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശത്ത് രൂപം കൊണ്ട ചക്രവാത ചുഴിയുടെ സ്വാധീനത്താലാണിത്